ഹർത്താലുമായി ബന്ധമില്ലെന്ന് ആർ എസ്

സിയെ നേരിടും രുട്ട്ട്ട്ട്ട്ട്ട്ട ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പുയരുന്ന സാഹചര്യത്തിൽ വെള്ളം തുറ ന്നുവിടേണ്ടിവന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം അവലോകനം ചെയ്തു തുടരുന്ന മഴമൂലം സംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാ ണ് ആവശ്യമായ തയ്യാറെടുപ്പുകൾക്ക് ഇടുക്കി എറണാകുളം കലക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി

യോഗത്തിൽ മന്ത്രിമാരായ ഇ ചന്ദ്രശേഖ രൻ മാത്യു ടി തോമസ് കെ എസ് ഇ ബി ചീഫ് മാനേജിംഗ് ഡയറക്ടർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളം ഒഴുകിപ്പോകുന്ന ചാലുകളിലെ തടസ്സങ്ങളും പുഴയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവ രുടെ വിശദാംശങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ സർവേ നടത്തി കണ്ടെത്തും രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മൂന്നുലക്ഷം രൂപവരെ വിനിയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആലപ്പുഴ യിൽ അറിയിച്ചു

വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരു ത്താൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി അറി യിച്ചു രദ്ദേഷ്ടങ മഴക്കെടുതിയിൽ പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാടൻ മേഖലയിൽ ദുരിതം തുടരുകയാണ് നിരണം നെടുമ്പ്രം പെരിങ്ങര പഞ്ചായത്തുകളിൽ നിരവധി വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറിയ നിലയിലാണ്

രദേശ്ശേ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരു ന്നതിനാൽ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഒരാഴ്ചകൂടി ഇടയ്ക്കിടെ തുറ ക്കുമെന്ന് വൈദ്യുതിബോർഡ് അറിയിച്ചു കക്കാട്ടാറിന്റെയും പമ്പാനദിയു ടെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ഇരുകരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി രദ്ദേഷ്ടങ ലോറി ട്രക്ക് ഉടമകൾ എട്ടുദിവസമായി നടത്തിവന്ന ദേശീയ പണിമു ടക്ക് പിൻവലിച്ചു ലോറി ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉറപ്പിനെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത് ഗതാഗത സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമരക്കാരുടെ ആവശൃം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സമിതി രൂപീകരിക്കാമെന്ന് ഉടമകളുടെ സംഘടനാ നേതാ ക്കളുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്രം അറിയിച്ചു മൂന്നുമാസത്തിനകം സമിതി റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഡൽഹി യിൽ അറിയിച്ചു തേർഡ് പാർട്ടി ഇൻഷൂറൻസ് പ്രീമിയത്തിലെ വർദ്ധന പുനഃ പരിശോധിക്കാൻ ഇന്ന് ഡൽഹിയിൽ ഇൻഷൂറൻസ് റെഗുലേറ്ററി അതോറി റ്റിയുടെ യോഗം ചേരുന്നുണ്ട്

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇന്ന് ഒ പി ബഹിഷ്കരി ക്കും ഗവൺമെന്റ് സ്വകാരൃ മേഖലകളിലെ ഡോക്ടർമാർ ബഹിഷ്കരണ ത്തിൽ പങ്കെടുക്കും അത്യാഹിത വിഭാഗത്തിലും തീവ്രപരിചരണ വിഭാഗ ത്തിലും അടിയന്തിര ഘട്ടങ്ങളിലും മാത്രമേ ഡോക്ടർമാരുടെ സേവനം ലഭ്യ മാകൂവെന്ന് ഐ

എ ന്യൂഡൽഹിയിൽ അറിയിച്ചു ദർവ്വട്ടെഴ പെർമിറ്റില്ലാതെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ നിയമാനുസൃതം കർശന നടപടിയെടുക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഗതാ ഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി അന്യസംസ്ഥാനത്ത് നിന്നുൾപ്പെടെ ഇത്തരം ബസ്സുകൾ കേരളത്തിൽ സർവീസ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടു ണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഇത് കെ

സിക്കും സംസ്ഥാനത്തിനും വൻ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നുണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടു പോകുന്ന വാഹനങ്ങൾ കർശന നിരീക്ഷണത്തിന് വിധേയമാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു ദർവ്വെട്ടറ നിർമ്മാണ മേഖലയിൽ ലോകത്തിന്റെ ഏതുഭാഗത്തെയും നൂതന സാങ്കേ തികവിദ്യ സംസ്ഥാനത്തുപയോഗിക്കാവുന്നതാണെങ്കിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്ന് മന്ത്രി ജി

ഇപ്പോൾത്തന്നെ പ്ലാസ്റ്റിക്കും സ്വാഭാവിക റബറും കയർ ഭൂവസ്ത്രവും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരുവന ന്തപുരത്ത് പറഞ്ഞു മൂന്നാമത് എഞ്ചിനീയേഴ്സ് കോൺഗ്രസിനോടനുബ ന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശന മേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി പ്രദർശനം ഉദ്ഘാ ടനം ചെയ്തു രുട്ട്ട്ട്ട്ട്ട്ട്ട ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില സംഘടനകൾ മറ്റന്നാൾ പ്രഖ്യാപിച്ച ഹർത്താൽ നിർബന്ധിത ഹർത്താലായി മാറാതിരി ക്കാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു

എസ് എസിന് ബന്ധമില്ലെന്ന് പ്രാന്തകാരൃവാഹ് പി

ഏതാനും സംഘടനകൾ ഹിന്ദു സംഘടനകളെന്ന പേരിൽ ഹർത്താൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാ ണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഹർത്താൽ ആഹ്വാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടെത്താൻ ഗവൺമെന്റ് വിശദ മായ അന്വേഷണം നടത്തണം സുപ്രീംകോടതിയുടെ പ്രിഗണനയിലിരി ക്കുന്ന ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനം തെരുവിൽ പരിഹരി ക്കേണ്ടതല്ലെന്നും പ്രാന്തകാര്യവാഹ് അഭിപ്രായപ്പെട്ടു രദ്ദമ്പ്പെട്ടറ ഉപജീവനത്തിന് മീൻ വിൽക്കാനിറങ്ങിയ കോളജ് വിദ്യാർത്ഥിനി ഹനാ നെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട വയനാട് സ്വദേശി നൂറുദ്ദീൻ ഷെയ്ക്കിനെതിരെ പൊലീസ് കേസെടുത്തു വിവര സാങ്കേതികവിദ്യാ നിയ മത്തിന്റെയും ഇന്ത്യൻ ശിക്ഷാനിയമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പാലാ രിവട്ടം പൊലീസ് കേസെടുത്തത് പെൺകുട്ടിയെ അപമാനിച്ചവർക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു ദർശ്ശേര മാതൃത്വത്തെ ഉപ്ഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി കാണരുതെന്ന് മിസോറം ഗവർണർ കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു അളന്നെടു ക്കാൻ കഴിയാത്തതാണ് മാതൃത്വം കോന്നിയിൽ ശബരിസേവാ സമിതിയുടെ മാതൃസദനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുമ്മനം രാജശേഖരൻ

കെ പ്രസിഡന്റുമായ എം കരു ണാനിധിയെ രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ചെന്നൈ കാവേരി ആശു പത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഗോപാലപു രത്തെ വീട്ടിൽനിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് തീവ്ര പരി ചരണ വിഭാഗത്തിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഇപ്പോൾ സാധാരണ നിലയിലാണെന്ന് ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു

സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു കബറടക്കം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുസ്ലിംലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദ രലി ശിഹാബ് തങ്ങൾ എം പിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ ശ്രീമതി പി കരുണാകരൻ എം

എമാർ മുസ്സിംലീഗ് സംസ്ഥാന ജനറൽ സെക്ര ട്ടറി കെ

എ മജീദ് മുൻമന്ത്രി കെ

സി മറുപടിയില്ലാത്ത ആറു ഗോളിന് മെൽബൺ സിറ്റിയെ പരാജയപ്പെടുത്തി

സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ പരമോന്നത ബഹുമതിക്ക് പുരുഷ വിഭാഗ ത്തിൽ ഷട്ടിൽ ബാഡ്മിന്റൺ താരം രൂപേഷ്കുമാറും വനിതാ വിഭാഗത്തിൽ അത്ലറ്റിക്സ് താരം അനിൽഡ തോമസുമാണ് അർഹരായത് ഒളിംപ്യൻ സുരേഷ്ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫുട്ബോൾ പരിശീലകൻ ഗബ്രിയേൽ ഇ ജോസഫിനാണ് സ്പോർട്സ് കൌൺസിലിന്റെ ദൃശ്യ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സമ്മാനിക്കും

ദർവ്വെടു മൂന്നാമത് സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് ഇന്നും നാളെയും കണ്ണൂ രിൽ നടക്കും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ മന്ത്രി എ സി മൊയ്തീൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും

വള്ളങ്ങൾക്ക് ബോണസ്സും ഗ്രാന്റും പത്തുശതമാനം വർദ്ധിപ്പിക്കാൻ നെഹ്റു ട്രോഫി ബോട്ട് റെയ്സ് സൊസൈറ്റി തീരുമാനിച്ചു

കണ്ണൻ സ്മാരക മന്ദിരത്തിൽ മന്ത്രി ടി

രാമകൃഷ്ണൻ അംഗത്വ വിതർണം ഉദ്ഘാടനം ചെയ്യും

ഇന്നലെ സ് കൂൾബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മുക്കോലക്കൽ സ്വദേശി സുകുമാരൻ നായർ മരണമടഞ്ഞിരുന്നു

ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങ ളുടെ മറവിൽ മതാചാരങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ലെന്നും ഇതി നെതിരെ എല്ലാ മതവിശ്വാസികളും ഒന്നിക്കണമെന്നും സംസ്ഥാന ഭാരവാ ഹികൾ കോഴിക്കോട്ട് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു

ബസ്സിൽ കടത്തുകയായിരുന്ന ഒരു ക്വിന്റൽ പാൻമസാല എക്സൈസ് പിടി കൂടി